പരസ്യ പ്രചാരണം ഇന്നലെ വൈകീട്ട് അവസാനിച്ചു ഇന്ന് നിശബ്ദ പ്രചാരണം

അസമിലും പശ്ചിമബംഗാളിലും മൂന്നാംഘട്ട വോട്ടെടുപ്പ് നാളെ ത കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിദേശങ്ങളിൽ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്ന സംഘങ്ങൾക്കായി ഇന്നും നാളെയും വെർച്വൽ സന്ദർശക പരിപാടി സംഘടിപ്പിക്കും

വാർത്തകൾ വിശദമായി കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്

സ്ഥാനാർത്ഥികളും പ്രവർത്തകരും വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് ഉറപ്പിക്കുന്ന തിരക്കിലായിരിക്കും ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദേശത്തെ തുടർന്ന് കൊട്ടിക്കലാശമോ ബൈക്ക് റാലിയോ ഇല്ലായിരുന്നെങ്കിലും ആവേശം ഒട്ടും ചോരാതെയാണ് പരസ്യ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകൾ കടന്നു പോയത് ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വീറും വാശിയും നിറഞ്ഞ പ്രചാരണത്തിനാണ് ഒരു മാസത്തോളം കേരളം ഇത്തവണ സാക്ഷ്യം വഹിച്ചത് കൊടും ചൂടിനെ പോലും വകവെക്കാതെയായിരുന്നു ചൂടേറിയ പ്രചാരണം നാടും നഗരവും ഇളക്കി മറിച്ചത്

വ്യാജ ഇരട്ട വോട്ടുകൾ തടയുന്നതിന് മിക്ക പോളിങ്ങ് ബൂത്തുകളിലും വെബ്കാസ്റ്റിങ്ങ് സൌകര്യം ഏർപ്പെടുത്തും

നക്സൽ ബാധിത പ്രദേശങ്ങളിൽ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പും തണ്ടർ ബോൾട്ടും നിതാന്ധജാഗ്രത പുലർത്തും അതിർത്തി ജില്ലകളിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കോവിഡ് പശ്ചാത്തലത്തിൽ ആയിരത്തിൽ കൂടുതൽ വോട്ടർമാർ ഉള്ള ബൂത്തുകളിൽ അധിക ബൂത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്

വോട്ടെടുപ്പിന്റെ അവസാന മണിക്കൂറിൽ കോവിഡ് ബാധിതർക്കും പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവർക്കും ബൂത്തിലെത്തി വോട്ട് ചെയ്യാം

ഓരോബൂത്തിൽ നിന്നുമുള്ള ദൃശ്യങ്ങൾ ഭാവി ഉപയോഗത്തിനായി ക്ലൌഡ് സർവറിൽ സൂക്ഷിക്കും

മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ തണ്ടർ ബോൾട്ടിന്റെ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തി

സി ടി വി സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് സംഘർഷ സാധ്യതയുള്ളതും സെൻസിറ്റീവ് ആയതുമായ പോളിങ്ങ് സ്റ്റേഷനുകളിൽ കേന്ദ്ര സേനയുടെ പ്രത്യേക സുരക്ഷാ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ദേദ പരസ്യ പ്രചാരണത്തിന്റെ അവാസനഘട്ടത്തിൽ കൊല്ലം ജില്ലയുടെ ചില ഭാഗങ്ങളിൽ അക്രമ സംഭവങ്ങളുണ്ടായി അഞ്ചൽ കരുകോണിൽ യുഡിഎഫ് എൽഡിഎഫ് തമ്മിൽ സംഘർഷമുണ്ടായതിനെത്തുടർന്ന് പൊലീസ് ലാത്തി വീശി സംഭവത്തിൽ മൂന്നു പേർക്ക് പരിക്കേറ്റു കരുനാഗപ്പള്ളി കുലശേഖരപുരം ഗ്രാമ പഞ്ചായത്ത് ഇരുപത്തിയൊന്നാം വാർഡ് ബിജെപി മെമ്പർക്ക് മർദ്ദനമേറ്റു സംഭവത്തിന് പിന്നിൽ എസ്

അതീവ സുരക്ഷയോടെയാണ് കൺട്രോൾ യൂണിറ്റ് ബാലറ്റിങ്ങ് യൂണിറ്റ് വിവി പാറ്റ് വോട്ടേഴ്സ് സ്സിപ് സ്റ്റേഷനറി സാമഗ്രകൾ തുടങ്ങി വോട്ടിങ്ങ് യന്ത്രത്തിലേക്ക് ആവശ്യമായ എല്ലാ വസ്തുക്കളും വിതരണം ചെയ്യുക കോവിഡ് പ്രോട്ടോകോൾ ഹരിത പെരുമാറ്റച്ചട്ടം എന്നിവ കർശനമായി പാലിച്ചുകൊണ്ടായിരിക്കും സാമഗ്രികളുടെ വിതരണം

അസമിലും പശ്ചിമ ബംഗാളിലും മൂന്നാംഘട്ട വോട്ടെടുപ്പും നാളെ നടക്കും

രുഭ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിദേശങ്ങളിൽ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്ന ഘടകങ്ങൾക്കും സംഘടനകൾക്കുമായി ഇന്നും നാളെയും വെർച്വൽ തെരഞ്ഞെടുപ്പ് സന്ദർശക പരിപാടി സംഘടിപ്പിക്കും കേരളമുൾപ്പെടെ നാല് സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെടുപ്പ് നടക്കുമ്പോൾ രാജ്യത്തെ വോട്ടെടുപ്പ് പ്രക്രിയ എങ്ങനെയാണെന്നത് സംബന്ധിച്ച് മൊത്തതിൽ ഓൺലൈനായി വിശദവിവരങ്ങൾ ലഭ്യമാക്കാനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്

ദേദ സംസ്ഥാനത്ത് കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് വർദ്ധിക്കുന്നു

ദേഴ തെരഞ്ഞെടുപ്പിനു ശേഷം കോഴിക്കോട് ജില്ല ലോക്ഡൌണിലേക്ക് പോവാൻ സാധ്യത ഒഴിവാക്കാൻ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കലക്ടർ സാംബശിവ റാവു പറഞ്ഞു കലക്ടറേറ്റിൽ നടന്ന സെക്ടറൽ മജിസ്ട്രേറ്റുമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊതു ഇടങ്ങളിൽ മാസ്ക് ധരിക്കാത്തവർക്കും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്കുമെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും കലക്ടർ പറഞ്ഞു ആളുകൾ കൂടാനിടയുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ച് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ സെക്ടറൽ മജിസ്ട്രേറ്റുമാർക്ക് കലക്ടർ നിർദേശം നൽകി കോവിഡ് ടെസ്റ്റ് വാക്സിൻ വിതരണം എന്നിവ കൃത്യമായി നടത്തുന്നുവെന്ന് ഉറപ്പുവരുത്താനും സെക്ടറൽ മജിസ്ട്രേറ്റുമാരെ ചുമതലപ്പെടുത്തി രുഭ ചത്തീസ്ഗഡിൽ നക്സൽ ആക്രമണത്തെ തുടർന്നുണ്ടായ സുരക്ഷാ സ്ഥിതി വിലയിരുത്താൻ ആഭ്യന്തര മന്ത്രി അമിത് ഷായുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു

ഇവരുടെ ജീവത്യാഗം വെറുതെ ആകില്ലെന്ന് ജവാൻമാർക്കും രാജ്യത്തിലും അദ്ദേഹം ഉറപ്പു നൽകി